മനോഹർ അഗ്നാനി പറഞ്ഞു

പീറ്റർ

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജീവനക്കാരെ നൽകിയതും അവരുടെ ശമ്പളം നൽകുന്നതും ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിയാണെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി രുര കൊല്ലം ജില്ലയിൽ കോവിഡ് വ്യാപനം കുറയ്ക്കുന്നതിന് രോഗബാധിതരുടെ പ്രാഥമിക സമ്പർക്കപട്ടിക പൂർണമായി ശേഖരിക്കാൻ നടപടിയായി

രുര അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന ഓൺലൈൻ സിമ്പോസിയം സിംസാക് എക്സ് കേന്ദ്ര കൃഷി സഹമന്ത്രി പർഷോത്തംഭായ് രൂപാല രാവിലെ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഇന്ത്യൻ സൊസൈറ്റി ഫോർ സ്പൈസസ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കൃഷി സഹമന്ത്രി കൈലാഷ് ചൌധരി വിശിഷ്ഠാതിഥിയായി പങ്കെടുക്കും നാലു ദിവസത്തെ സിമ്പോസിയത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും സുഗന്ധവ്യഞ്ജന ഗവേഷണത്തിന് നൽകുന്ന സുഗന്ധഭാരതി അവാർഡും മികച്ച കർഷകർക്ക് സുഗന്ധശ്രീ അവാർഡും ചടങ്ങിൽ സമ്മാനിക്കും രുര സൌദി അറേബ്യൻ യാത്രക്കിടെ ദുബായിൽ കുടുങ്ങിയ മലയാളികൾക്ക് യാത്രാനുവാദം നൽകാൻ കേന്ദ്രം ഇടപെടണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു

ഇവർക്ക് താമസവും ഭക്ഷണവും ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യങ്ങൾ നൽകണമെന്നും വിസാ കാലാവധി നീട്ടണമെന്നും ആവശ്യക്കാർക്ക് മടക്കയാത്രാ സൌകര്യം ഏർപ്പെടുത്തണമെന്നും സംസ്ഥാനം അഭ്യർത്ഥിച്ചു യുഎഇ യിലെ ഇന്ത്യൻ അംബാസിഡർക്ക് ഈ ആവശ്യം ഉന്നയിച്ച് കത്തെഴുതിയിട്ടുണ്ട് രുര സംസ്ഥാന ഗവൺമെന്റ് അംബേദ്ക്കർ ഗ്രാമവികസന പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിലെ ഏഴ് പട്ടിക വർഗ കോളനികളിൽ പൂർത്തീകരിച്ച പദ്ധതികൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും രും കോഴിക്കോട് ജില്ലയിലെ മൂന്ന് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലെ പൂർത്തീകരിച്ച പദ്ധതികളും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും പെരുവണ്ണാമൂഴി റിസർവോയർ തീരത്തെ തോണിക്കടവ് വിനോദസഞ്ചാര പദ്ധതി അരിപ്പാറ വെള്ളച്ചാട്ട വികസന പദ്ധതി കാപ്പാട് ബീച്ചിലെ ഗ്രീൻ കാർപ്പെറ്റ് പദ്ധതി എന്നിവയാണ് പൂർത്തീകരിച്ചത് രുഭ കൊല്ലത്തെ ആശ്രാമം വാക് വേ നവീകരണ പദ്ധതി അഷ്ടമുടി വില്ലേജ് ക്രാഫ്റ്റ് മ്യൂസിയം എന്നിവ വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനാകും രും തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റേയും ഗവേഷണ കേന്ദ്രത്തിന്റേയും പുനരുജ്ജീവന ടൂറിസം പദ്ധതി പൂർത്തീകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് ഉദ്ഘാടനം ചെയ്യും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കും ദ്ദേ കേരള രാജ്യാന്തര ചലച്ചിത്ര മേളക്ക് നാളെ തിരുവനന്തപുരത്ത് തിരശീല ഉയരും

രുമ നാല് മേഖലകളിലായി നടത്തുന്ന ചലച്ചിത്രമേളയിൽ ആദ്യത്തേതാണ് നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് ആറ് തിയേറ്ററുകളിലായി നടത്തുന്ന മേള നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ഫെസ്റ്റിവൽ ഓഫീസും ഡെലിഗേറ്റ് സെല്ലും ഇന്നലെ പ്രവർത്തനം ആരംഭിച്ചു മേളയിൽ പങ്കെടുക്കുന്നവർക്ക് ഇന്നും നാളെയുമായി കോവിഡ് ആന്റിജൻ ടെസ്റ്റ് പൂർത്തിയാക്കും

രുര ഗോവയിൽ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ എഫ്സി ഗോവ മുംബൈ സിറ്റി മത്സരം ഇരു ടീമുകളും മൂന്ന് ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു

രും കാസർകോട്ട് രണ്ട് മാസത്തിനകം സ്ത്രീകളുടേയും കുട്ടികളുടേയും ആശുപത്രി ആരംഭിക്കുമെന്ന് മന്ത്രി കെ

കാഞ്ഞങ്ങാട്ട് അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടവും ജില്ലാ ആശുപത്രിയിലെ കാത്ത് ലാബും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലേബർ ബ്ലോക്കിന് മന്ത്രി തറക്കല്ലിടുകയും ചെയ്തു രുഭ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിനെ ഫിലമെന്റ് രഹിത ക്യാമ്പസായി മന്ത്രി എം

സൌരോർജ്ജത്തിൽ അധിഷ്ഠിതമായ സമ്പദ്ഘടനയിൽ ശ്രദ്ധകേന്ദ്രീകരിക്കണമെന്നും വരുന്ന തലമുറയ്ക്കായി ഭൂമിയും ഊർജ്ജസ്രോതസ്സുകളും സംരക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു

ജയരാജൻ ഇന്ന് എറണാകുളം ജില്ലയിൽ മൂന്ന് പരിപാടികളിൽ പങ്കെടുക്കും കൊച്ചിയിൽ പെട്രോക്കെമിക്കൽ പാർക്ക് മാമലയിൽ കെൽ പവർ ട്രാൻസ്ഫോമർ പ്പാന്റ് എറണാകുളത്ത് ഖാദി ഫാഷൻ സെന്റർ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്യും രുഭ കേരളത്തിൽ എൽഡിഎഫിന്റെ ഭരണതുടർച്ച ഇല്ലാതാക്കാൻ എല്ലാ പ്രതിലോമ ശക്തികളും ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്ന് മുന്നണി കൺവീനർ എ

കാഞ്ഞങ്ങാട്ട് മന്ത്രിമാരായ കെ

ശൈലജ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇ ചന്ദ്രശേഖരൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി ഇന്ന് കാസർകോട് ടൌൺഹാളിലാണ് അദാലത്ത് രംഭ മലപ്പുറം ജില്ലാ സാന്ത്വന സ്പർശം പരാതി പരിഹാര അദാലത്ത് രാവിലെ മന്ത്രി ടി

രാമകൃഷ്ണൻ കൊണ്ടോട്ടി മേലങ്ങാടി വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും എറനാട് കൊണ്ടോട്ടി തിരൂരങ്ങാടി താലൂക്കുകളിലെ പരാതികളാണ് പരിഗണിക്കുന്നത് രുര ഇടുക്കിയിലെ തൊടുപുഴ മുട്ടത്ത് കിൻഫ്ര ആരംഭിക്കുന്ന സ്പൈസസ് പാർക്കിന് മന്ത്രി ഇ

ജയരാജൻ ഇന്ന് തറക്കല്ലിടും